കാസ്ടർകോട് മണ്ഡ ലത്തിൽ റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും പ്രചാരണം തുടരുന്നു

സംസ്ഥാന തെരുഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ നൽകി ഇന്ന് പുലർച്ചെ അന്തരിച്ച മുൻമന്ത്രിയും കോൺഗ്രസ് നേതാ വുമായ കടവൂർ ശിവദാസ്ന് അന്ത്യാഞ്ജലി മൃതദേഹം കൊല്ലത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചു

ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാന ത്തെയും ഘട്ട പരസ്യപ്രചാരണം ഇന്നു വൈകിട്ട് സമാപിക്കും

ബംഗാളിലെ പ്രചാരണം തെര ഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇന്നലെ രാത്രി അവ സാനിപ്പിച്ചിരുന്നു

തമിഴ്നാ ട്ടിലെ വെല്ലൂരിൽ വോട്ടിന് പണം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്

കള്ളവോട്ടിന്റെ പേരിൽ സംസ്ഥാനത്ത് ആദ്യ മായാണ് റീ പോളിംഗ് നടക്കുന്നത്

മൂന്നു മുന്നണികളുടെയും പ്രവർത്തകർ വോട്ടർമാരെ നേരിൽകണ്ട് വോട്ട് തേടുന്നുണ്ട് പൊലീസ് പോസ്റ്റൽവോട്ട് തിരിമറി വിഷയത്തിൽ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുപോയ നാല് പൊലീസുകാരെ തിരിച്ചു വിളിച്ചു

ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആംഡ് പൊലീസ് ബറ്റാലിയൻ എഡിജിപി യുടെ നടപടി നവോത്ഥാനം എന്തെന്ന് മുഖ്യമന്ത്രിയെ പഠിപ്പിക്കുന്നതാവും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു

അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോ ടിയായി മുന്നൂറോളം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പുനർനിർണയിക്കാൻ ഗവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ നൽകിയതായി റിപ്പോർട്ട് പുതുതായി മുനിസിപ്പാലിറ്റി കളും കോർപ്പറേഷനുകളും രൂപീകരിക്കേണ്ടതില്ലെന്ന് പഞ്ചായത്ത് വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എൻ പത്മകുമാറിന്റെ നേതൃത്വ ത്തിലുള്ള സമിതി നൽകിയ ശുപാർശയിൽ വൃക്തമാക്കി ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പുന്നർനീർണയിക്കാൻ ജന സംഖ്യ വിസ്തീർണ്ണം വരുമാനം എന്നീ മൂന്ന് മാനദണ്ഡങ്ങളാണ് സമിതി നിർദേശിച്ചത് എൻ ഡി എ സംസ്ഥാന നേതൃയോഗ്ഗം ചേർത്തലയിൽ ആരം ഭിച്ചു യോഗത്തിൽ ബിജെപ്പി സംസ്യ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിളള ബിഡിജെഎസ് സ്ംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പ്പങ്കെടുക്കുന്നുണ്ട് ലോക്സഭാ തെര ഞ്ഞെടുപ്പ് വിശകലന്റമാണ് മുഖ്യ അജണ്ട ഇന്നു പുലർച്ചെ അന്തരിച്ച മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കട്വൂർ ശിവദാസന്റെ മൃതദേഹം കൊല്ലത്തെ വസ തിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് രാവിലെ കൊല്ലം ജില്ലാകോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേ ഷമാണ് മൃത്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത്

കെ കരുണാകരൻ എ

ആന്റണി മന്ത്രിസഭകളിൽ തൊഴിൽ വൈദ്യുതി വനം എക്സൈസ് ആരോഗ്യ വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് അഞ്ചു തവണ നിയമസഭാ അംഗമായി

തൊഴിൽമന്ത്രിയെന്ന നിലയിൽ എല്ലാ തൊഴി ലാളികളെയും സഹായിക്കാമെന്നത് തെളിയിച്ചു വ്യക്തിയായിരുന്നു കടവൂർ ശിവദാസനെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻച്ചാണ്ടി പറഞ്ഞു

സാധാരണക്കാർക്കൊപ്പം നിന്ന് തൊഴിൽമന്ത്രിയായിരുന്നു കട വൂരെന്നും കാര്യങ്ങൾ പഠിച്ച് നടപ്പാക്കുന്നതിൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നുവെന്നും യു്ഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ അനുശോചന സ്ന്ദേശത്തിൽ പറഞ്ഞു

കേന്ദ്രൂമാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പദ്ധതി അനുമതി ബോർഡാണ് അനുമതി നൽകിയത്

വയനാട് പത്തനംതിട്ട ജില്ലകളിൽ മാത്ര മാണ് സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചത്

വിദ്യാർത്ഥി പ്രവേശനത്തിന് പിടിഎ ഫണ്ടിന്റെ പേരിൽ നിർബന്ധിത പിരിവ് നടത്തുന്ന സ്കൂൾ പ്രഥമാധ്യാപകർക്കെ തിരെ നടപടിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദേശം ഗവൺമെന്റ് സ്കൂളിലടക്കം പിടിഎ ഫണ്ടിന്റെ പ്പേരിൽ വൻതുക ഈടാക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും ആത്മ ഹത്യചെയ്ത സംഭവത്തിൽ ഭർത്താവ് ചൂന്ദ്രനടക്ക്ം പ്രതികൾക്കെ തിരെ ആത്മഹത്യാ പ്രേരണകുറ്റത്തിന് പുറക്കെ ഗാർഹികപീഡന കുറ്റവും ചുമത്തി

വൃത്തങ്ങൾ അറി യിച്ചു കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തുടക്കം കുറിച്ച് നെയ്യാ ട്ടം ഇന്ന് വ്രൈകുന്നേരത്തോടെ ആരംഭിക്കും

വയ നാട് മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് വാൾ എഴുന്നള്ളിപ്പ് ഇന്നാണ് ചോതിവിളക്ക് തെളിയിക്കുന്ന സമയത്ത് മുതിരേരി വാൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിക്കും നാളെ ഭണ്ഡാരം എഴുന്നള്ളിപ്പിന് ശേഷം അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്കും പ്രവേശനം നൽകും

കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കെഎസ്ആർടിസി കണ്ണൂരിന് പുറമെ മാനന്തവാടി കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ് ആരംഭിക്കുന്നുണ്ട് കോഴിക്കോട് നീലേശ്വരം ഗവ

അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ്കോ ടതി പൊലീസിന് നിർദേശം നൽകി

പരിസ്ഥിതി ലോല മേഖലയിൽ നിർമിച്ച തടയണ പ്രദേശവാസികൾക്ക് ഭീഷ ണിയാണെന്ന വാദം അംഗീകരിച്ചാണ് ഉഹ്ഹെക്കോടതി കഴിഞ്ഞ മാസം പത്തിന് ചീങ്കണ്ണിപ്പാലയിലെ വെള്ളം ഒഴുക്കിവിടാൻ നിർദേശം നൽകിയത്

കോഴിക്കോട് ചെങ്ങോട്ടുമലയിൽ ഖനനാനുമതിയിൽ ഒരു മാസ ത്തിനകം തീരുമാനമെടുക്കാൻ ജില്ലാകലക്ടർ വിളിച്ച യോഗത്തിൽ ധാരണയായി

ജില്ലാകലക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിക്കാനും തീരുമാനമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വർണവേട്ട വിമാനത്താ വള ജീവനക്കാരനടക്കം രണ്ടുപേർ പിടിയിലായി മൂന്നേകാൽ കിലോ സ്വർണമാണ് പിടികൂടിയത് ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയെയും ക്ലീനിംഗ് സൂപ്പർവൈസറെയുമാണ് ഡിആർഐ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം അങ്കമാലി തൃശൂർ വടക്കാഞ്ചേരി സെക്ഷ നുകൾക്കിടയിൽ നവീകരണം നടക്കുന്നതിനാൽ ഇതുവഴിയുളള ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി

മറ്റ് ചില ട്രെയിനുക ളുടെ സമയത്തിലും മാറ്റമുണ്ട് കേരള എൻട്രൻസ് കമ്മീഷണറുടെ വിജ്ഞാപനമനുസരിച്ച് പോപ്പ് അപ്പ് റൌണ്ട് കൌൺസിലിംഗിന് ശേഷം ഒഴിവുള്ള മെഡിക്കൽ പിജി സീറ്റുകളിൽ നാളെ പ്രവേശനം നടത്താൻ തീരുമാനിച്ചതായി തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു എൻട്രൻസ് കമ്മീഷണർ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽനിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പ്രവേശനം ഗുരുവായൂർ ദേവസ്ഥത്തിൽ ജോലിയിലിരിക്കെ മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകുന്ന നിയമനങ്ങൾ ഗവ്ൺമെന്റ് മാനദണ്ഡം മാത്രം പാലിച്ചു മതിയെന്ന് ദേവസം ഭൂര്ണസ്മിതി തീരുമാനിച്ചു ക്ലാസ്സ് മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ക്ലർക്ക് തസ്തികക്ക് അഞ്ച് ശതമാനവും ക്ലാസ്സ് ഫോർ തസ്തിക്ക്ക് അഞ്ച് ശതമാനവും ആശ്രിതർക്ക് നിയമനം നൽകണം എന്നാണ് ഗവൺമെന്റ് ചട്ടം തൃശൂർ റിലയൻസ് ഫ്രഷ് സൂപ്പർമാർക്കറ്റിൽ ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തിയ റെയ്ഡിൽ പാക്കറ്റിൽ രേഖപ്പെടുത്തിയ പരമാവധി വിലയേക്കാൾ കൂടുതൽ തുക വാങ്ങുന്നതായി കണ്ടെത്തി പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിനെതിരെ കേസെടുത്തു